സംരക്ഷിച്ചു കൊണ്ടുള്ളതാണെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി

റഫാൽ യുദ്ധവിമാന ഇടപാടിൽ സ്പ്രി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച എല്ലാ ഷ്ടർജികളും സുപ്രീംകോടതി തള്ളി

മധ്യപ്രദേശിൽ കമൽ നാഥ് തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ഉയർത്തി രാജ്യസുരക്ഷാ താത്ഷ്യൂർസംരക്ഷിക്കുന്നതിന് ഈ കരാറിലൂടെ സാധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

കരാറിനെ സംബന്ധിച്ച് ധാരാളം കള്ളക്കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും എന്നാൽ അത്തരം കഥകൾക്ക് ആയുസ്സ് കുറവാണെന്നും ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു

കരാറിന്റെ നടപടിക്രമങ്ങൾ തീരുമാനങ്ങൾ എന്നിവയിൽ സംശയിക്കേണ്ടതായി ഒന്നുമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബഞ്ച് വ്യക്തമാക്കി റഫാൽ വിമാനത്തിന്റെ ഗുണനിലവാരത്തിലും കരാറിലും സംശയമില്ലെന്നും വിമാനത്തിന്റെ വിലയിൽ വിശദമായ പരിശോധന നടത്തേണ്ട സാഹചരൃമില്ലെന്നും കോടതി വ്യക്തമാക്കി

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഈ വിഷയത്തിൽ ഗവൺമെന്റിനെതിരെ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മാപ്പു പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് സംവാദത്തിന് ബി ജെ പി തയ്യാറാണെന്നും ശ്രീ

പാർട്ടിയുടെ മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ അറിയിച്ചതാണ് ഇക്കാര്യം റഫാൽ കരാർ സംബന്ധിച്ച് സുപ്രീംകോടതി വിധി കോൺഗ്രസിന് തിരിച്ചടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു

കരാറിൽ പക്ഷപാതൃപ്രമ്മായി ഒന്നുമില്ല

റഫാൽ യുദ്ധവിമാന ഇടപാടു സംബന്ധിച്ചു സുപ്രീംകോടതി വിധിയും ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ വാദപ്രതിവാദങ്ങളും സഭകളെയും ഇരു പ്രക്ഷുബ്ധമാക്കി കൂടുതൽ വിവരങ്ങളുമായി വീണാ മുകുന്ദൻ ലോക്സഭയിൽ സമ്മേളനം ആരംഭിച്ച ഉടൻ റഫാൽ യുദ്ധവിമാന ഇടപാടിൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കോൺഗ്രസിന്റേതെന്ന് മന്ത്രി നരേന്ദ്രസിംഗ് തോമറും പറഞ്ഞു എന്നാൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണ്ട് വേണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് ബഹളും തൂടർന്നു

സുപ്രീംക്യോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ ക്ടോൺഗസ്സിനെതിരേയും രാഹുൽഗാന്ധിക്കെ തിരേയും ഭരണപക്ഷ് അംഗങ്ങൾ മുദ്രാവാകൃം മുഴക്കി ചോദ്യോത്തരവേള ഒഴിവാക്കി റഫാൽ ഇടപാട് സംബന്ധിച്ച് ചർച്ച നടത്തണമെന്ന് ധനമന്തി അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു എന്നാൽ ഇടപാടിൽ ജെ പി സി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്സ് അംഗങ്ങളും ആവശ്യപ്പെട്ടു

രണ്ട് ദിവസത്തെ ഇടവേളയ്ക്കുശേഷം പാർലമെന്റിന്റെ ഇരുസഭകളും ഇനി തിങ്കളാഴ്ച സമ്മേളിക്കും

കേരള പോലീസ് കൌണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന സംഘമാണ് രൂപീകരിച്ചത്

കേരളത്തിലെ ബിജെപി പ്രവർത്തകരൂമായി വീഡിയോ കോൺഫറൻസിംങ്ങിലൂടെ സംവ്ദിക്കുകയായിരുന്നു അദ്ദേഹം

കേരളത്തിലെ ബിജെപി പ്രവർത്തകർ ജനങ്ങളുടെ ശബ്ദമായി മാറുകയാണ് രാഷ്ട്രീയ അക്രമങ്ങൾ തുടരുമ്പോൾ പോലും ശക്തമായി ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചവരാണ് ബിജെപി പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പുണ്ടായ പ്രളയത്തില ദുരിതബാധികരായവർക്ക് പ്രധാനമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു

സച്ചിൻ പൈലറ്റ് ഉപമുഖൃമന്ത്രിയാകും മധ്യപ്രദേശിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽ നാഥ് തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വിശദാംശങ്ങളുമായി വീണാ മുകുന്ദൻ

രാജസ്ഥാനിലെ ജനങ്ങളെ സേവിക്കുന്നതിനുള്ള അവസരം നൽകിയതിന് ശ്രീ

സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കാർഷിക പ്രതിസന്ധികളും ഇല്ലായ്മ ചെയ്യുന്നതിനായി ശ്രമിക്കുമെന്നും ശ്രീ

മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിലുള്ള ലാൽ പരേഡ് ഗ്രൌണ്ടിലാണ് മുഖ്യമന്ത്രിയായി കമൽ നാഥ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക

ചരിത്ര സംഭവങ്ങള്ള് സമകാലിക വിഷയങ്ങളുമായി ഇഴചേർത്തുള്ള് ആഖ്യാന ശൈലിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക്ത്ത്ത്യ്ന് പുരസ്കാര നിർണ്ണയ സമിതി വിലയിരുത്തി

കൊൽക്കത്ത സ്വദേശിയായ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ പുരസ്ക്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്

നേരത്തെ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു

സംസ്ഥാനത്തെ ഖനന മേഖലയായുംബുദ്ദേർഖാണ്ഡ് തീർത്ഥാടന കേന്ദ്രമായ ചിത്രക്കൂട് എന്നിവിയെയ്യും ലക്നൌ പൂർവാഞ്ചൽ ജില്ലകളേയും ബന്ധിപ്പിക്കൂന്ന്ത്യാണ് ഈ പാതയെന്ന് ഹൈവേ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

രാജ്യത്തെ വനിതാ കർഷകരുടെ നിരന്തര പരിശ്രമങ്ങളും വിജയ കഥകളും ജനങ്ങൾക്കുമുന്നിലേക്ക് എത്തിയ്ക്കുന്നതിനാണ് പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ റിയാലിറ്റി ഷോ സംപ്രേഷണം ആരംഭിക്കുമെന്ന് ശ്രീ സൂര്യപ്രകാശ് പറഞ്ഞു വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി അമിത് ഖാരേ ചടങ്ങിൽ പങ്കെടുത്തു

പുതുതായി നിയമിതമായ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്

നിലവിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചും ആഭ്യന്തര ആഗോള വെല്ലുവിളികളെ കുറിച്ചും യോഗം ചർച്ച ചെയ്തു

സിർസില്ല മണ്ഡ്ഡല്ത്തിൽ നിന്നുള്ള എം

എയായ താരകറാവു മുൻപ് സംസ്ഥാന് ഐ ടി പഞ്ചായത്ത് നഗരകാര്യ മന്ത്രിയായിരുന്നു